ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കില്ലാശം ഇന്ന്

സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇന്ത്യൻ പ്രതിരോധ വൃവസായവുമായി കൈകോർക്കാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സൈനൃത്തിന്റെ പിന്തുണ തേടി

ഗുജറാത്ത് കേഡറിലെ മുൻ ഐ

അനൂപ് കുമാർ സിങ്ങിനെ ദേശീയ സുരക്ഷാ ഗാർഡിന്റെ മേധാവിയായി നിയമിച്ചു

തുടക്കമാകും

പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ അവസാനവട്ട പ്രചരണത്തിന് ് നേതൃത്വം നൽകുകയാണ്

മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഫലപ്രദമായ നടപടികൾ കൈക്കൊള്ളാൻ അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിന് കഴിഞ്ഞില്ലെന്ന് പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ഹരിയാനയിലെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് റാലിയിൽ സോണിയഗാന്ധി പങ്കെടുക്കുമെന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും പങ്കെടുത്തില്ല

രാജ്യം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് കേന്ദ്രഗവൺമെന്റ് ശ്രദ്ധ തിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജമ്മുകാശ്മീരിൽ മറ്റ് സുരക്ഷാ ഏജൻസികൾക്കൊപ്പം സൈന്യം നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു കലാപമായാലും ദുരന്തനിവാരണ പ്രവർത്തനങ്ങളായാലും രാജ്യം നേരിടുന്ന എല്ലാ വെല്ലുവിളികൾക്കും അന്തിമ ആശ്രയമാണ് സൈന്യം എന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹിയിൽ ഇന്നലെ സമാപിച്ച അഞ്ച് ദിവസത്തെ ആർമി കമാൻഡേഴ്സ് കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായി രുന്നു അദ്ദേഹം ലോകമെങ്ങും യുദ്ധത്തിന്റെ രീതികൾ മാറിക്കൊണ്ടിരി ക്കുകയാണെന്നും അതിനായി രാജ്യം സജ്ജമാകേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

മധ്യപ്രദേശിൽ നിന്നും കൂടുതൽ തക്കാളി എത്തിയതോടെ മിക്ക സംസ്ഥാനങ്ങളിലും തക്കാളി വില കുറഞ്ഞു മധ്യപ്രദേശിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഉള്ളി എത്തിരിത്തുടങ്ങി ഇതോടെ രാജ്യത്ത് ഉള്ളി വില കുറയും വിപണിയിൽ പയർവർഗങ്ങളുടെ വില പിടിച്ചുനിർത്താൻ ആവശ്യമായ അ്ത്രയും സ്റ്റോക്ക് കൈവശമുണ്ടെന്നും സമിതി വിലയിരുത്തി

നിയമനം കേന്ദ്ര മന്ത്രിസഭയുടെ നിയമന സമിതി അംഗീകരിച്ചു

നാഗാ സമാധാന ചർച്ചയുടെ ഗവൺമെന്റ് പ്രതിനിധിയായ ആർ

രവി നാഗാലാൻഡിലെ കൊഹിമ യിലെ നാഗാ സമൂഹത്തിലെ പ്രതിനിധികളുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി

എസ് ബഹിരാകാശ സഞ്ചാരികളായ ക്രിസ്റ്റീന കൊക് ജെസിക്ക മെയ്ർ എന്നിവരാണ് ഇന്നലെ ഇബ്റ്റിരാകാശ നിലയത്തിനു പുറത്തിറങ്ങിയത് നിലയത്തിന്റെ ക്ടോ്യംബാറ്ററി ചാർജ് ഡിസ്ചാർജ് യൂണിറ്റ് മാറ്റിവയ്ക്കലായിരുന്നു ഭൌതൃ്മെന്ന് നാസ അറിയിച്ചു

അതിർത്തി ഗ്രാമമായ ബാബ് അൽ ഖേറിലാണ് വ്യോമാക്രമണം ഉണ്ടായതെന്നും സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടതെന്നും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടന അറിയിച്ചു

പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ കൊണ്ടുവന്ന കരാർ വിശദമായ ചർച്ചകൾക്കുശേഷം വോട്ടെടുപ്പിനിടും

കരാറിനെ പിന്തുണയ്ക്കാൻ ബോറിസ് ജോൺസൺ എം

മറുപക്ഷത്തുള്ളവരുടെ പിന്തുണയില്ലാതെ കരാർ പാസാവില്ല

ഡി എഫ് എൽ

എഫ് എൻ ഡി എ് മുന്നണികൾ അഞ്ച് മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് ആവേശകരമായ പ്രചാരണമാണ് നടത്തുന്നത് അരൂർ ഒഴിച്ചുള്ള നാലു സിറ്റിങ്ങ് സീറ്റും നിലനിർത്താനും അരൂർ തിരിച്ചുപിടിക്കാനുമുള്ള പോരാട്ടമാണ് യൂ ഡി

പാലായിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആവേശം ഉൾക്കൊണ്ട് അഞ്ചിടത്തും വിജയിക്കുകയാണ് എൽ ഡി

ജെ പി ശക്തമായ ത്രികോണ മത്സരം ഒരുക്കി നിയമസഭയിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്നത്തെ കൊട്ടിക്കലാശത്തിനുശേഷം നാളെ നിശബ്ദ പ്രചാരണത്തിനുള്ള ദിനമാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്ന് എല്ലാ ജില്ലകളിലും യെല്ലോ അല്ലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടി മിന്നൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്

ഒറ്റതിരിഞ്ഞുള്ള മഴയായതിനാൽ ജാഗ്രത പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ളതിനാൽ രാത്രി യാത്ര ഒഴിവാക്കണം

പരിക്കിനെ തുടർന്ന് വിശ്രമം അനുവദിച്ച കുൽദീപ് യാദവിന് പകരം ഷെഹ്ബാസ് നദീമിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ രണ്ട് മത്സരങ്ങൾ വിജയിച്ച് പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്

ഇന്നലെ ലക്നൌവിൽ രണ്ട് അജ്ഞാതർ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു

സി ടി വി ഉൾപ്പെടെ സുപ്രധാനമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും കുറ്റവാളികളെ ഉടൻ പിടികൂടുമെന്നും ഡി